മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്

എൽ ഫുട്ബോളിൽ ഗോവ എഫ്

ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണമെന്നും ഇത് യുവജനങ്ങളെയും വരുന്ന തലമുറകളെയും പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു ന്യൂഡൽഹിയിൽ വിഡിയോ കോൺഫറൻസിംഗിലൂടെ കാലാവസ്ഥാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി

രംഭ രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന് മാർഗ രേഖയായി

ആശുപത്രികൾക്കു പുറമെ ഹാളുകളും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളാക്കും ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവണ്മെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്കു നിർദേശം നൽകി രെ അവസാനഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇന്ന് നിശ്ശബ്ദ പ്രചാരണത്തിന്റെ ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വീടു വീടാന്തരം കയറിയിറങ്ങും പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിക്കും

വിതരണ കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡം ഉറപ്പുവരുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ നിർദ്ദേശം നൽകി പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കോവിഡ് ടെസ്റ്റ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

വൈകിട്ട് മൂന്നുമുതൽ നാളെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ സർട്ടിഫൈഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഡെസിഗ്നേറ്റഡ് ഹെൽത്ത് ഓഫീസറുടെ സാക്ഷ്യപത്രം ഹാജരാക്കി പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം ടെട കണ്ണൂർ ജില്ലയിൽ ഇന്നും നാളെയും വോട്ടെണ്ണൽ ദിനമായ ബുധനാഴ്ചയും ജഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിൽ മദ്യ വിൽപ്പന ശാലകൾ തുറക്കുകയോ മദ്യം വിതരണം നടത്തുകയോ ചെയ്യരുതെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ടെട സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം സ്വന്തം നേർക്ക് തിരിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ തിരിഞ്ഞതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു അന്വേഷണം നിർണ്ണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി ദേശീയ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണ ഏജൻസിയെ തിരിച്ച് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയ്ക്ക് കത്തയക്കുന്നത് പരിഹാസ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതരുടെ എണ്ണം

ദേവസ്വത്തിലെ മറ്റു ജീവനക്കാർക്ക് ചൊവ്വാഴ്ച പരിശോധന നടത്തും കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്നലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജന പ്രവേശനം വിലക്കിയിരുന്നു പതിവ് പൂജകൾ തുടരും ക്ഷേത്ര പരിസരം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രെടി കോവിഡ് വാക്സിന്റെ വരവോടെ പഴയകാലം തിരിച്ചു പിടിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചലച്ചിത്ര നിർമ്മാതാവും കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ മുൻ ഭാരവാഹിയുമായ ലിബർട്ടി ബഷീർ ആകാശവാണിയോട് പറഞ്ഞു

ഹരിയാനയിലെ കർഷക നേതാക്കൾ ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നതായി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു കാർഷിക നിയമങ്ങളെ അനുകൂലിച്ച് അവർ നിവേദനം നൽകിയതായും നേട്ടത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതായും മന്ത്രി പറഞ്ഞു

എ ഖാദറിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ തിക്കോടിയിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും

കോഴിക്കോട് ആകാശവാണി നിലയത്തിലും മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലും ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും അദ്ദേഹം സേവനം അനുഷ്ടിച്ചു

കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട് മംഗളം ദിനപത്രം കോഴിക്കോട് യൂണിറ്റിൽ റെസിഡന്റ് എഡിറ്ററായിരുന്നു കേരള സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഭരണസമിതി അംഗമായിരുന്നു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വൈസ് പ്രസിഡന്റും എക്സിക്യുട്ടീവ് അംഗവുമായിരുന്നു പുരോഗമന കലാസാഹിത്യസംഘം പ്രസിഡന്റായും പ്രവർത്തിച്ചു

ഏഴാമത്തെ വയസ്സിൽ യു

ഖാദർ പിതാവിനോടൊപ്പം കൊയിലാണ്ടിയിൽ എത്തുകയായിരുന്നു

ഏറെക്കാലമായി ശ്വാസകോശ അർബുദത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം

എ ഖാദറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എ

മതനിരപേക്ഷവും പുരോഗമനപരവുമായ നിലപാട് കൈക്കൊള്ളുകയും സർഗ്ഗാത്മക സാഹിത്യത്തിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്ത കഥാകാരനായിരുന്നു ഖാദറെന്ന് അദ്ദേഹം പറഞ്ഞു മലബാറിന്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന യു എ ഖാദറിന്റെ വിയോഗം സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണെന്ന് ടി പി രാമകൃഷ്ണൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മലയാള സാഹിത്യ ലോകത്ത് സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു യു എ ഖാദറെന്ന് എ കെ ശശീന്ദ്രൻ അനുസ്മരിച്ചു

യും ഏറ്റുമുട്ടും

വൈദ്യുതി റഗുലേറ്ററി കമ്മീഷനാണ് സംസ്ഥാനത്ത് നിരക്ക് നിശ്ചയിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച താരിഫ് ഉത്തരവ് അനുസരിച്ചാണ് ഇപ്പോൾ നിരക്ക് ഈടാക്കുന്നത്